തൂടരാൻ ഇന്തൃയും ചൈനയും ധാരണയായി രാജൃരക്ഷാമന്ത്രി രാജ്നാഥ് സിങ്ങ് നാളെ ലേ സന്ദർശിക്കും

കേരളത്തിൽ കോവിഡ് സാമൂഹൃ വൃാപന ആശങ്ക വിട്ടൊഴിഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി

ധാംസനങ്ങളും സംബന്ധിച്ച് ചൈനാ ബന്ധമുള്ള യു

റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പൂടിന് ഭരണത്തിൽ തുടരാൻ ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം

ഇരുഭാഗത്തും നയതന്ത്ര തലത്തിലും സൈനികതലത്തിലും ചർച്ചകൾ തുടരും ഇന്ത്യൻ കരസേനയുടെയും പീപ്പിൾ ലിബറേഷൻ ആർമിയുടെയും കമാൻഡർമാർ ഇന്നലെ ചുസൂളിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു

ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ്

ആറാം തീയതി നടത്തിയ കൂടിക്കാഴ്ചയിലെ ധാരണയനുസരിച്ച് ഇരുഭാഗത്തും ഉത്തരവ്യാദിത്ത്തോടെ സാധാരണ നില പാലിക്കാനും തീരുമാനിച്ചിരുന്നു

അത്രിർത്തിയിലെ പ്രശ്നങ്ങൾ സങ്കീർണ്ണമാണെങ്കിലും കെട്ടിച്ചമുച്ചതും വാസ്തവവിരുദ്ധവുമായ വാർത്തകൾ അവഗണിക്കണ്ട്മെന്നും പൊതു അഭിപ്രായമുണ്ടായി

മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികൾ പ്രയോജനപ്പെടുത്തിയുള്ള പുതിയ കരാർ ഉടൻ വിളിക്കും

എൻ എൽ വടക്കു കിഴക്കൻ പടിഞ്ഞാറൻ തെക്കൻ മേഖലകളിലും ഡൽഹിയിലും മുംബൈയിലും എം

ഇന്ത്യ ചൈന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും കോവിഡിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായുമാണ് കരാർ റദ്ദാക്കിയത്

സംയുക്ത സംരംഭങ്ങളിലും ഏർപ്പെടില്ല

ഉൾപ്പെടെയുള്ള രംഗങ്ങളിൽ ചൈനീസ് കമ്പനികൾ പങ്കാളിയാവുന്നില്ലെന്ന് ഉറപ്പാക്കുമെന്ന് വാർത്താ ഏജൻസിയോട് കേന്ദ്ര മന്ത്രി പറഞ്ഞു രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവെയ്പ്പ് കൂടിയാണിതെന്ന് ശ്രീ

സംയോജിത ജി എസ്

ടി വരുമാനം

പ്രതിരോധശേഷി കുറഞ്ഞവരെയും മറ്റു രോഗങ്ങൾ ഉള്ളവരെയും സംബന്ധിക്കുന്ന വിവരങ്ങൾ ശേഖരിച്ച് ഇട്ടപ്പെടുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നിരീക്ഷണത്തിലുള്ളവരുടെ കൂടു്ടു്ബാംഗങ്ങളുടെ വിവരവും ശേഖരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു അടച്ചിടൽ നിയന്ത്രണങ്ങൾ പിൻവലിച്ചതിനെ തുടർന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ തിരികെ എത്തിത്തുടങ്ങിയതോടെ സംസ്ഥാനത്ത് രോഗികളുടെ എണ്ണം ഗണ്ടുമായി വർധിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ഏറുന്ന രോഗവ്യാപനം കണക്കിലെടുത്ത് ദേശീയതലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പരിശോധനകളാണ് അയൽസംസ്ഥാനത്ത് നടക്കുന്നത്

എ

ഏകകണ്ഠമായാണ് കൌൺസിൽ പ്രമേയം പാസ്സാക്കിയത്

എസ് കമ്പനികൾക്ക് അമേരിക്കയുടെ മാർഗ്ഗനിർദ്ദേശം കുറച്ചുദിവസമായി ട്രംപ് ഭരണകൂടം കൈക്കൊള്ളുന്ന നടപടികളുടെ ഭാഗമാണിതും

കൂടാതെ ഉയിഗൂർ ഹ്യൂമൻ റൈറ്റ്സ് പോളിസി ആക്ടിലും ട്രംപ് ഒപ്പുവച്ചു ലോകത്തിലെ ഏറ്റവും സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യങ്ങളിലൊന്നാണ് ചൈനയെന്ന് യു

ഹോങ്കോങ്ങിലെ ജനതയുടെയും ബ്രിട്ടീഷ് പ്ൌരന്മാരുടെയും താൽപ്പര്യം പരിഗണിക്കാതെ ഏകപക്ഷ്ട്രീയ്മായാണ് ചൈന ഹോങ്കോങ്ങ് സുരക്ഷാനിയമം പ്രാസ്സാക്കിയത് അമേരിക്ക സ്ഥിതിഗതികൾ പരിഗണിച്ചു വ്രികയ്ാണെന്നും മൈക്ക് പോംപിയോ പറഞ്ഞു